എറണാകുളം ഗവ

ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്

ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം മൂന്നു ലക്ഷം കവിഞ്ഞു

ദേദ രാജ്യത്ത് കൊറോണ വാക്സിൻ പരീക്ഷണം മനുഷ്യരിൽ ആരംഭിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

പ്രാഥമിക പരീക്ഷണങ്ങളിൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ല

മുതിർന്ന പൌരന്മാരിൽ കോവിഡ് ബാധയേൽക്കുന്നതിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീവ്രത കുറയ്ക്കുന്നതിനും ബിസിജി വാക്സിൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ പഠനം നടത്തും തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി തുടങ്ങി രോഗവ്യാപനം കൂടുതലുള്ള ആറ് സംസ്ഥാനങ്ങളിലാണ് പഠനം നടത്തുക

എറണാകുളം ഗവ മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന തടിക്കക്കടവ് വെളിയത്തുനാട് തോപ്പിൽ വീട്ടിൽ കുഞ്ഞുവീരാൻ ആണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

ദേദ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങൾ ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണായി അർധരാത്രി മുതൽ നിയന്ത്രണം നിലവിൽ വന്നു പത്തു ദിവസത്തേക്കാണ് നിയന്ത്രണം ഈ ദിവസങ്ങളിൽ ഒരു തരത്തിലും ലോക്ക്ഡൌൺ ഇളവുകൾ മൂന്ന് സോണുകളായി തിരിച്ച തീരപ്രദേശങ്ങളിൽ ഉണ്ടാവില്ല

രുമ കൊല്ലം ജില്ലയിൽ ചിതറ കുമ്മിൾ കടയ്ക്കൽ എന്നീ ഗ്രാമ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളും കണ്ടയിൻമെന്റ് സോണുകളാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

ഇതിൽ പത്ത് പേരും മത്സ്യത്തൊഴിലാളികളാണ്

മൽസ്യ മാർക്കറ്റിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ റാപ്പിഡ് പരിശോധനയിൽ കൂടുതൽ പോസിറ്റിവ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇന്ന് ഉണ്ടാവുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

റീത്ത അറിയിച്ചു

മന്ത്രികെ കെ ശൈലജ ഓക്സിജൻ പ്ലാന്റും നവീകരിച്ച ഒ പി ബ്ലോക്കും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് കീഴിൽ ആദ്യമായാണ് ഒരു ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്

എൻ ഷംസീർ എം എൽ എ

ആർദ്രം പദ്ധതിയുടെ ഭാഗമായി എൻഎച്ച്എം ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഒപി ബ്ലോക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് രുമ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസികളുമായി ഇന്ന് ഏഴ് വിമാനങ്ങൾ എത്തും

ഇന്നലെ പ്രവാസികളുമായി ആറു വിമാനങ്ങളാണ് കൊച്ചിയിൽ എത്തിയത് ദേദ അതിരപ്പിള്ളി മലക്കപ്പാറ വനമേഖലയിലേയ്ക്ക് സപ്പൈകോയുടെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ പ്രവർത്തനം പുനരാരംഭിച്ചു കോവിഡ് സാഹചര്യത്തിൽ ആദിവാസി കോളനികളിലേക്ക് അവശ്യ സർവ്വീസിന്റെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ പ്രവർത്തനം പുനരാരംഭിച്ചത് ദേശ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കർക്കിടകവാവുബലി കർമ്മങ്ങൾ വീടുകളിൽ മാത്രമായി നടത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദേശം നടപ്പാക്കുമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി ആർ

നിർദേശം ലംഘിച്ചു കൊണ്ട് ദേവസ്വം അധികാരികളും ക്ഷേത്രഭാരവാഹികളും ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ടെട കുട്ടനാട്ടിലെ എടത്വയിൽ കാർ മരിത്തിലിടിച്ച ശേഷം വെള്ളക്കെട്ടിൽ വീണ് കാറിലുണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ മരിച്ചു തലവടി സ്വദേശികളായ മിഥുൻ എം പണിക്കർ നിമൽ എം പണിക്കർ എന്നിവരാണ് മരിച്ചത് ദേഴ കോഴിക്കോട് ബാലുശ്ശേരി കിനാലൂരിൽ പിതാവിന്റെ മർദനത്തെ തുടർന്ന് മകൻ മരിച്ചു പിതാവ് വേണുവിനെ പോലീസ് കസ്ററഡിയിലെടുത്തു ബാലുശ്ശേരി ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർഥി അലനാണ് മരിച്ചത് രുമ ആലപ്പുഴ ആര്യാട് പള്ളിമുക്കിൽ നിന്നും വേമ്പനാട് കായലിൽ മീൻ പിടിക്കാൻ പോയ മൽസ്യത്തൊഴിലാളിയെ കാണാതായി

രുര ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്

ദേദ കണ്ണൂർ തളിപറമ്പിനടുത്ത് നാട്ടുകാണി വ്യവസായ പാർക്കിലെ കിടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ തീ ഇന്ന് രാവിലെയോടെ പൂർണ്ണമായും അണച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് തീ പിടിച്ചത്